ഭയപ്പെടുത്തി നിശബ്ദരാക്കി ആവിഷ്കാരം തടസ്സപ്പെടുത്തുന്ന പ്രവ ണതക്കെതിരെ കലാകാരൻമാർ നിലപാടെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂലമറ്റും പവ്വർ ഹൌസിൽ രണ്ടാം നമ്പർ ജനറേറ്ററിൽ പൊട്ടിത്തെറി സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യ ത മകരമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു

ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തോൽവി ള്ള ൽ ശ്ര ശു ശു ശു ശു അ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച വിഷയ ത്തിൽ ഗവൺമെന്റ് നൽകിയ വിശദീകരണം ഗവർണർ ആരിഫ് മുഹ മ്മദ് ഖാൻ തള്ളി ഗവർണറെ അറിയിക്കാതെ സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സുപ്രീംകോടതിയെ സമീ പിക്കുന്നതിന് ഗവർണറുടെ അംഗീകാരം വേണമെന്ന കാഴ്ചപ്പാടാണ് തന്റേതെന്നും തന്നെ അറിയിക്കാതെയാണ് ഗവൺമെന്റ് സുപ്രീംകോ ടതിയെ സമീപിച്ചതെന്നും ഗവർണർ പറഞ്ഞു ഇത് നിയമപരമായി ശരി യല്ലെന്നും ഒരു വിശദീകരണവും തന്നെ തൃപ്തിപ്പെടുത്തില്ലെന്നും ഗവർണർ അറിയിച്ചു ഇന്നലെയാണ് ചീഫ് സെക്രട്ടറി ടോംജോസ് രാജ്ഭ വനിലെത്തി ഗവൺമെന്റ് സമീപനത്തിൽ ഗവർണർക്ക് വിശദീകരണം നൽകിയത് ഭയപ്പെടുത്തി നിശബ്ദരാക്കി ആവിഷ്കാരം തടസ്സപ്പെടുത്തുന്ന പ്രവണത കൾക്കെതിരെ കലാകാരൻമാർ നിലപടെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു അതിനുവേണ്ട ധൈരൃം അവർക്കു പകരാൻ പൊതുസമൂഹത്തിന് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിശാ ഗന്ധി നൃത്തോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി വൈവിധ്യങ്ങളുടെ നാട് എന്നതാണ് ഇന്ത്യയെ ഒരു മിപ്പിക്കുന്ന പ്രധാനഘടകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏഴു ദിവസ ങ്ങളിലായി നടക്കുന്ന നൃത്തോത്സവത്തെ സൂചിപ്പിച്ച് സപ്തദീപങ്ങൾ കൊളുത്തിയാണ് മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം വിഖ്യാത ഭർതനാട്യ നർത്തകൻ ഡോ

വി ചന്ദ്രശേഖറിന് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു

ഹരിത കേരളം മിഷനും തദ്ദേശസ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ശൂചിത്വ സംഗമത്തിലെ ദേശീയ സെമിനാറുകൾക്കും ശിൽപശാലകൾക്കും ഇന്ന് തിരുവനന്തപുരത്ത് തുട ക്കമാവും കനകക്കുന്ന് സൂര്യകാന്തിയിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഉദ്ഘാടനം ചെയ്യും മാലിന്യ സംസ്കരണ മേഖലയിലെ മാതൃക കളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതിന് ഹരിത കേരളം മിഷൻ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കിയ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്കേർപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ ഹരിത അവാർഡും ശുചിത്വ സംഗമത്തിൽ വിതരണം ചെയ്യും മൂലമറ്റം വൈദ്യുത നിലയത്തിലെ രണ്ടാം നമ്പർ ജനറേറ്ററിന്റെ എക്സിറ്റർ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചു

പൊട്ടിത്തെറി മൂലം കനത്ത പുക ശ്വസിച്ച് ശ്വാസതടസം അനുഭവപ്പെട്ട രണ്ട് ജീവനക്കാരെ മുട്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈദ്യുത നിലയത്തിലെ രണ്ടാം നമ്പർ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്

മൂലമറ്റത്ത് നിന്ന് അഗ്നിശമനസേന എത്തി രക്ഷാപ്രവർത്തനം നടത്തി പാട്ടിത്തെറിയുടെ കാരണം വൃക്തമായിട്ടില്ല

വൈദ്യുത വിതരണ രംഗത്ത് ഈ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചതായി മന്ത്രി എം

ഇടുക്കി ജില്ലാ വൈദ്യുതി അദാലത്ത് കട്ടപ്പനയിൽ ഉദ് ഘാടനം

സമ്പൂർണ്ണ് വൈദ്യുതീകരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യം യാഥാർത്ഥ്യമായെന്നും ലോഡ് ഷെഡിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർമാർക്കായി ക്ഷേമപദ്ധതി കൊണ്ടുവരുമെന്ന് മന്ത്രി കെ

ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിലിന്റെ ഓഫീസ് ഓട്ടോമേഷൻ ഉദ്ഘാടനവും സ്മാർട്ട് കാർഡ് വിതരണവും തിരുവന ന്തപുരത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ ശീലങ്ങൾ മാറിയതുവഴിയുണ്ടായ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ പ്രാഥമിക ആരോഗ്യ സംരക്ഷണ മേഖല ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ആദിവാസി കുട്ടികൾക്ക് കാൽലക്ഷം പഠനമുറികൾ ഒരുക്കുമെന്ന് മന്ത്രി എ

അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ഗ്രാമ പഞ്ചായത്തിലെ പുത്തറക്കൽ കോളനിയുടെ പ്രവർത്തന പൂർത്തീകരണ പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി ഭവന നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറ ഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭയുടെ ലൈഫ് മിഷൻ പി

വൈ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

എഫ് നൽകുന്നത്

ലഹരി വസ്തുക്കളുടെ വിപണനത്തിനും ഉപയോഗത്തിനും തടയിടാൻ കർശന നടപടികൾക്കൊപ്പം ബോധവത്ക്കരണ പരിപാടിയും വലിയ പങ്കുവഹിക്കുന്നതായി മന്ത്രി എം

മകരമാസ പൂജകൾ പൂർത്തിയാക്കി ശബ്ബരിമല നട അടച്ചു മകരവിളക്ക് അടിയന്തര ചടങ്ങുകൾ ഇന്നലെ മാളികപ്പുറത്തെ ഗുരുതിയോടെ സമാ പിച്ചു പുലർച്ചെ ഗണപതിഹോമത്തിന് ശേഷം തിരുവാഭരണ പേടക ങ്ങൾ പതിനെട്ടാം പടിയിറക്കി കോഴിക്കോട് പന്തീരങ്കാവ് യു

എ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അലൈൻ ശുഹൈബിന്റെയും ത്വാഹാ ഫസലിന്റെയും വീടുകൾ പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ സന്ദർശിക്കും കേസിൽ സിപിഐഎം നേതാക്കളുടെ നിലപാടിന് പിന്നിൽ ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഇന്നലെ ഇവരുടെ വീടുകൾ സന്ദർശിച്ച പ്രതി പക്ഷ ഉപനേതാവ് ഡോ

കെ മുനീർ കുറ്റപ്പെടുത്തി കേസിന്റെ പിന്നിലെ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ യു

എഫ് ഗൌരവ മായി ഇടപെടുമെന്നും അദ്ദേഹം അറിയിച്ചു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയിലെ യു എസ് എംബസിക്ക് സമീപം വീണ്ടും റോക്കറ്റ് ആക്രമണം

പി റിപ്പോർട്ട് ചെയ്തു

ഇന്ന് ബോക്സിങ് ബാഡ്മിന്റൺ ടെന്നീസ് ഫുട്ബോൾ ഹോക്കി ഇനങ്ങളിൽ വിവിധ വിഭാഗ്ദ്ങളുടെ ഫൈനൽ നടക്കും

ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തോൽവി

സംസ്ഥാന കായിക ്യുവജന കാര്യാലയം നടപ്പാക്കുന്ന ബാസ്കറ്റ് ബോൾ പരിശീലന പരിപാടി ഹൂപ്പ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും

ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പത്ത് കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്

സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഫിലിം സൊസൈറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് കേരള രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവം ഇന്ന് രാവിലെ കോഴിക്കോട് ടാഗോർസെന്റിനറിഹാളിൽ ആരംഭിക്കും വൈകീട്ട് മേളയുടെ ഉദ്ഘാടനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ നിർവഹിക്കും ട ചടങ്ങിൽ അനുമോൾ മുഖ്യാതിഥിയായിരിക്കും

പന്ത്രണ്ടാമത് രാജ്യാന്തര നാടകോത്സവം ഇറ്റ്ഫോക്കിന് തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയിൽ തുടക്കമായി

നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക പൊതു ഇടങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും വനിതാ ശിശുവികസന വകുപ്പും ഇൻഫർമേഷൻ ആന്റ് പബ്ലിക്ക് റിലേഷൻസും സംയുക്ത മായി നിർമ്മിച്ച വിമോചനത്തിന്റെ പാട്ടുകാർ ഡോക്യുമെന്ററി ഫിക്ഷന്റെ ആദ്യ പ്രദർശനവും ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും പത്തൊൻപതാം നൂറ്റാ ണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരള ത്തിലെ നേട്ടങ്ങളിലും മുന്നേറ്റങ്ങളിലും സ്ത്രീകൾ വഹിച്ച പങ്ക് വൃക്ത മാക്കുന്നതാണ് ഡോക്യുഫിക്ഷൻ വയനാട് ജില്ലയിലെ ചിലയിടങ്ങളിൽ മാവോയിസ്റ്റ് ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കോളനികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഡോ അദീലൂ അബ്ദുള്ള നിർദേശം നൽകി ആദിവാസി കോളനികളിലേയ്ക്ക് റോഡ് സഞ്ചാര യോഗൃമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ അംഗൻവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും കലക്ടർ നിർദേശിച്ചു കൊച്ചി കപ്പൽ ശാലയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാന വാഹിനി കപ്പലിന്റെ നിർമ്മാണ പുരോഗതി രാജ്യരക്ഷാ സെക്രട്ടറി അജയ്കുമാ റിന്റെ നേതൃത്വത്തിൽ സമിതി വിലയിരുത്തി ഈ വർഷം മധൃത്തോടെ വിമാനവാഹിനി കപ്പൽ കടലിൽ ഇറക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്

പ്രവേശന മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചില കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സംഭവത്തിൽ സ്ഥാപനമേധാവികളോട് വിശദീകരണം ചോദിക്കാനും യോഗം തീരുമാനിച്ചു

എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന സുഭാഷ് വാസുവിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താ ക്കാൻ സംസ്ഥാന കൌൺസിൽ യോഗം തീരുമാനിച്ചെന്ന് പാർട്ടി ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ അറിയിച്ചു സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ്ജ് ആലഞ്ചേരിക്കെ തിരെ സഭാ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു

പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ സംസ്ഥാനത്ത് താലിബാൻ മോഡൽ തീവ്രവാദം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കു ന്നതായി ബി

പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ

കാഞ്ഞങ്ങാട് ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രമുഖ മത പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവുമായ സി കെ ബീരാൻകുട്ടി മുസ്ലിയാർ മലപ്പുറം വാളക്കുളത്ത് നിര്യാതനായി

മുസ്ലിം ലീഗ് നേതാവും മഹല്ല് പ്രസിഡന്റുമായ ടി പി അബ്ദുൽ അസീസ് വാഴ ക്കാട് നിര്യാതനായി